പിന്തുണച്ച് പ്രധാനമന്ത്രി ന്റ്രേന്ദ്ര മോദി

ആദ്യ ഇന്നിംഗ്സ് ഇന്ത്യ ഇന്ന് പുനരാരംഭിക്കും

എണ്ണായിരം കോടി മുതൽമുടക്കി നിർമ്മിക്കുന്ന ആയിരം മെഗാവാട്ട് ശേഷിയുള്ള നെയ്വേലി നവ താപോർജ്ജ വൈദ്യുത പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കമിടും

എൽ സൌരോർജ്ജ പദ്ധതി ലോവർ ഭവാനി പദ്ധതിയുടെ നവീകരണം കോരംപള്ളം പാലവും വി

ക്രാര്ക്കലിലെ ജിപ്മർ മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിനും പുതുച്ചേരി ജിപ്മറിന്റെ രക്തബാങ്കിനും പ്രധാനമന്ത്രിതൂടിക്കം കുറിക്കും പുതുച്ചേരിയിലെ തുറമുഖ വികസന പദ്ധതി ഇന്ദിരാഗാന്ധി സ്പോർട്സ് കോംപ്തക്സിലെ സിന്തറ്റീക്ക് ട്രാക്ക് എന്നിവയ്ക്കും ശ്രീ നരേന്ദ്ര മോദി തറക്കല്പിടും

നാല് തന്ത്രപ്രധാന മേഖലയിലൊഴികെ സ്വകാര്യവത്കരണം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രാബലൃത്തിൽ വരുന്ന വിവിധ പരിഷ്ക്കരണങ്ങളെ കുറിച്ചുള്ള വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാപനങ്ങളെയും വ്യാപാരത്തെയും പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ കടമയെന്നും സ്ഥാപനങ്ങൾ സ്വന്തമായി നടത്തുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു

അറുപത് വയസിന് മുകളിൽ പ്ര്യായമുള്ളവർക്ക് തിങ്കളാഴ്ച മുതൽ കോവിഡ് വാക്സിൻ നൽക്ട്നൂറ്റുണ് കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത്

മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇക്കാര്യം അറിയിച്ചത് പുതുച്ചേരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും കേന്ദ്ര മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തു പുതുച്ചേരി മുഖ്യമന്ത്രി രാജിവച്ചതിനെ തുടർന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ സർക്കാർ രൂപീകരിക്കാൻ മുന്നോട്ടു വരാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ശ്രീ

ടി ഹാർഡ്വെയർ മേഖലയിൽ ഉല്പാദന ബന്ധിത ആനുകൂലൃ പദ്ധതി ഏർപ്പെടുത്താനും മന്ത്രിസഭ തീരുമാനിച്ചു ഈ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം ആകർഷിക്കാൻ തീരുമാനത്തിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു

ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളും ഗ്രാമ സഡക് യോജനയുമായി ബന്ധപ്പെട്ട പരാതികളും ശ്രീ

ഈ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മികച്ച ഭരണവും വികസനവും ഉറപ്പാക്കാനുള്ള സർക്കാർ നടപടികൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും ഇന്തൃ വൃക്തമാക്കി

വെങ്കയ്യ നായിഡു ഇന്ന് കേരളത്തിൽ ഉച്ചയോടെയാണ് പ്രത്യേക വിമാനത്തിൽ ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തിച്ചേരുക

സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപൂരം നഗരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്യാ്ഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ശ്രീനഗർ സോനമാർഗ് ഗൂമ്രി റോഡിന്റെ സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി ശ്രീനഗറിൽ ചേർന്ന യോഗത്തിൽ കശ്മീർ ഡിവിഷണൽ കമ്മീഷണർ പി

പോൾ ആണ് ഇക്കാര്യം അറിയിച്ചത് സോജില പാസിൽ ഈ വർഷം കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നിട്ടും രണ്ട് മാസം കൊണ്ട് റെക്കോർഡ് സമയത്തിനുള്ളിലാണ് ദേശീയപാത ഗതാഗതത്തിനായി തുറക്കുന്നത്

ഒരു വശത്തേക്കുള്ള ഗതാഗതം മാത്രമാണ് ദേശീയപാതയിൽ തൽക്കാലം അനുവദിച്ചിട്ടുള്ളത്

ബർഹാംപൂറിലെ മഹാ മൃത്യുഞ്ജയ് ക്ഷേത്രത്തിലെ ഉദ്ഘാടന ചടങ്ങിലും ബടദ്രവ തനിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും അസമിലെ തീവ്രവാദ സംഘങ്ങളുടെ കീഴടങ്ങൽ ചടങ്ങിൽ സംബന്ധിക്കുന്ന അദ്ദേഹം വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കുന്ന റാലികളേയും അഭിസംബോധന ചെയ്യും

കഴിഞ്ഞ മാർച്ചിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് സാധാരണ ട്രെയിനുകളുടെ സർവ്വീസ് താൽക്കാലികമായി നിർത്തിയിരുന്നു

നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഡൽഹി സർക്കാർ

ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമില്ലാത്ത എല്ലാ കേസുകളും പിൻവലിക്കാനാണ് തീരുമാനം